വെങ്കയ്യനായിഡു

അഞ്ച് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നണികൾ

നഗരസഭാ നോട്ടീസ്ട് ചോദ്യം ചെയ്ത് മരട് ഫ്ളാറ്റ് ഉടമകൾ സമർപ്പിച്ച ഹർജി ഹ്ഹെ്ക്കോടതി തള്ളി

മത്സരം രാത്രി ഏഴിന് സൂററ്റിൽ

വെങ്കയ്യ നായിഡു പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ തന്നെ നൽകണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ

ഒരു ഭാഷയോടും വിവേചനം പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വാര്യർ ആയുർവേദത്തിൽ ആധുനിക അറിവുകൾ സൂക്ഷ്മമായി സംയോജിപ്പിച്ചു മഹത് വ്യക്തിയാണെന്നും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അനുസ്സ്മരിച്ചു

ഇരുവരും വിവി ധ ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ച് വിശാലമായ ചർച്ച കൾ നടത്തും ഇന്ത്യ പസഫിക് ദ്വീപ് നേതൃത്വത്തിന്റെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

സ്വച്ച് ഭാരത് അഭിയാൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബിൽമെലിന്ദ ഗേറ്റ്സ് ഫൌണ്ടേഷൻ നൽകുന്ന പുരസ്കാരവും ശ്രീ നരേന്ദ്രമോദി ഏറ്റുവാങ്ങും

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സീറ്റുകളിലും സി

മത്സരിക്കുമെന്ന് തീരുമാനത്തിന് ഇടതുമുന്നണി അംഗീകാരം നൽകിയെന്ന് എൽ

കൺവീനർ എ

എഫ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സി സി

യുവാക്കളോ സ്ത്രീകളോ ആരായാലും വിജയസാധ്യത കണക്കിലെടുത്ത് പേരുകൾ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിലെ എം പിമാർ എം എൽ

ഇത് സംബന്ധിച്ച് പാർട്ടിയിൽ യാതൊരുവിധ തർക്കങ്ങളും ഇല്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജീല്ലകളിലാണ് ആംബുലൻസുകൾ ആദ്യഘട്ടത്തിൽ വിന്യസിച്ചിട്ടുള്ളത്

മരട് മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ ഒഴീയണമെന്ന നഗരസഭ നോട്ടീസ് ചോദ്യം ചെയ്ത് ഫ്ളാറ്റ് ഉടമക്കിൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി മരടിലെ ഫ്ളാറ്റ് പ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി രാജ്യത്തെ മറ്റൊരു കോട്ടതിയിൽ പരിഗണിക്കരുതെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് നിയമലംഘനം നടത്തുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് മരട് വിധിയെന്ന് ഹൈക്കോടതി വൃക്തമാക്കി

മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

ഇന്ത്യയെ ഹർമൻപ്രീത് കൌർ നയിക്കും

ന്യൂവൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ ജനറൽ കൌൺസിലിലേയ്ക്ക് മൂന്ന് എം

എ ഖാദർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്

ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക

ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും ഓട്ടോറിക്ഷ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ പതിനായിരം രൂപ പിഴ ഈടാക്കുന്നത് പ്രായോഗികമല്ലെന്നും യോഗം വിലയിരുത്തി

അതിനിട്ടെ സംഭവത്തിൽ പോലീസിനോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് ത്ടിട്ടി

വനിതാ കമ്മീഷൻ അംഗങ്ങൾ അഗതി മന്ദിരം സ്ന്ദർശിച്ചു

പാകിസ്ഥാനിലെ മിർപൂരിൽ വ്യാപക നാശനഷ്ടമുണ്ടായതാണ് സൂചന ഇന്ത്യയിൽ ആളപായമോ നാശനഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കിഫ്ബി ഗവൺമെന്റിന് മറച്ച് വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ കിഫ്ബി പൂർണ്ണമായി സി

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം കിഫ്ബിയ്ക്ക് എതിരല്ലെന്നും എന്നാൽ കിഫ്ബിയുടെ പേരിലുള്ള അഴിമതിയ്ക്കും ധൂർത്തിനും എതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു തോമസ് ഐസക്ക് ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്നത് പരിശോധിക്കാനുള്ള അവകാശം സി

സംസ്ഥാന ഓഡിറ്റ് പ്ലികുപ്പ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹ്ഹം കിഫ്ബിയുടെ പണം പരിശോധിക്ക്ണോ് എന്ന കാര്യത്തിൽ തർക്കത്തിന്റെ കാര്യമില്ലെന്നും മീന്ത്രി പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷൻ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഏഴു വയസ്സുകാരനെ തെറ്റായി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഗവൺമെന്റ് രണ്ടു ലക്ഷം രൂപ് സമാശ്വാസം നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീ ഷൻ വകുപ്പുതല അന്വേഷണം നിയമാനുസരണം നടത്തി കുറ്റക്കാ രായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു ലേബർ കമ്മീഷൻ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി അടവിൽ വീഴ്ചവരുത്തിയതിനെത്തുടർന്ന് അംഗത്വം നഷ്ടപ്പെട്ടവർക്ക് കുടിശിക തുക പിഴ സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള കാലാവധി നീട്ടി സെപ്റ്റംബർ ഒന്നു മുതൽ ആറു മാസത്തേക്കു കൂടി കാലാവധി ദീർഘിപ്പിച്ച് കൊണ്ട് തൊഴിലും നൈപുണ്യവും വകുപ്പാണ് ഉത്തരവിറക്കിയത് കുഫോസ് പ്ളാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതാണ് കേരളത്തിലെ കായലുകൾ നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയെന്ന് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവ്വകലാശാല വൈസ് ചാൻസിലർ ഡോ

കുഫോസിൽ നാഷണൽ സർവ്വീസ് സ് കീമിന്റെ സുവർണ്ണ ജൂബിലി ദിനാച്ചാർണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോ